ജെ

ഭീകരതയും സമാധാന ചർച്ചയും ഒരുമിച്ചു ന് നടക്കില്ലെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ

ഒരുക്കങ്ങൾ സജീവം തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം പന്തളത്തുനിന്ന് യാത്ര തിരിക്കും

ന്യൂഡൽഹ്റ്റീയിലെ രാംലീല മൈതാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം ്പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ഇന്നലെ ആരംഭിച്ച സമ്മേളനം ബി ജെ

ദേശീയ പ്രസിഡന്റ് അമിത്ഷായാണ് ഉദ്ഘാടനം ചെയ്തത്

പ്രധാനമന്ത്രി കൃാബിനറ്റ് മന്ത്രിമാർ ബി ജെ

മുഖ്യ മന്ത്രിമാർ എം

ഉസ്ബക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആബ്ദുൾ അസീസ് കാമിലോവുമായി കേന്ദ്രമന്ത്രി അധ്യക്ഷ സ്ഥാനം പങ്കിടും

ദക്ഷിണ കൊറിയ യു

ഇ ഉക്രെയിൻ ഇംഗ്ലണ്ട് എന്നീ ശ്രീജ്യങ്ങളിൽ നിന്നുള്ള വ്യാപാര പ്രതിനിധി സംഘങ്ങളുമായു്കൃഅ്ദ്ദേഹം ചർച്ച നടത്തും

സമാധാന ചർച്ചകൾക്ക് പാക് പ്രധാനമന്ത്രി ഇമ്രാൻ ഖാന്റെ നിർദ്ദേശം യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്നതല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി

വോയിസ് സമാധാന ചർച്ചയും അതേസമയം ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുമാണ് പാകിസ്ഥാൻ പുലർത്തുന്നതെന്ന് വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു ഈ വ്യത്യസ്ഥ സമീപനം ശരിയല്ല വാക്കുകൾക്കപ്പുറം ഉറച്ച നടപടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വേണ്ടതെന്നും ശ്രീ

ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് പാകിസ്ഥാൻ ഇപ്പോഴും തുടരുന്നത്

കറാച്ചിയിലെ ചൈനീസ് കോൻസുലേറ്റിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ആരോപണം അസംബന്ധമാണെന്ന് ഇന്തൃ വൃക്തമാക്കി

മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുണ്ണതിന് പകരം സ്വന്തം മണ്ണിലെ ഭീകരതയെ ചെറുക്കാനിള്ള നടപടികളാണ് പാകിസ്ഥാൻ ചെയ്യേണ്ടതെന്നും വിക്ടിയാവ് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ വർഷം നവംബറിലാണ് കറാച്ചിയിൽ ഭീകരാക്രമണം ഉണ്ടായത്

സാമ്പത്തികമായി പിന്നാക്കം നില്ക്കുന്നവർക്ക് വേണ്ടിയുള്ള സംവരണം എന്ന പേരിൽ നല്കിയ ഫെയ്സ്ബുക്ക് പോസ്റ്റിലാണ് ധനകാര്യമന്ത്രിയുടെ പ്രതികരണം ദാരിദ്ര്യനിർമ്മാർജ്ജനത്തിന് സഹായിക്കുകയും പൊതുവിഭാഗത്തിലെ പാവപ്പെട്ടവരെ ഏറ്റവും അംഗീകരിക്കുകയും അധികം ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതിയാണ് ഇതെന്നും ശ്രീ അരുൺ ജെയ്റ്റ്ലി അഭിപ്രായപ്പെട്ടു

മുതിർന്ന ഇന്ത്യൻ ഓഫീസറുമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ലക്നൌ ജയ്പൂർ എന്നിവിടങ്ങളിലെ പ്രതിരോധ കാര്യാലയങ്ങളും നേപ്പാൾ കരസേനാ മേധാവി സന്ദർശിക്കും

സ്വാമി വിവേകാന്ദന്റെ ജന്മദിനമായ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി ഇന്ന് നരേന്ദ്രമോദിയും ശ്രദ്ധാജ്ഞലി അർപ്പിച്ചു സ്വാമിവിവേകാന്ദന്റെ ആശയവും ദർശനങ്ങളും വരുംതലമുറകളെ പോലും പ്രചോദിതരാക്കുമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു യുവാക്കളുടെ ശക്തിയിൽ സ്വാമിവിവേകാന്ദനുണ്ടായിരുന്ന വിശ്വാസം വലുതായിരുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദ് ട്വിറ്ററിൽ കുറിച്ചു മന്ത്രി രാജ്യ വർധൻസിംഗ് റാഥോഡ് ദേശീയ യുവജനദിനത്തിൽ രാജ്യത്തെ യുവാക്കൾക്ക് ആശംസകൾ അർപ്പിച്ചു

മറ്റന്നാളാണ് മകരവിളക്ക് കൂടുതൽ വിവരങ്ങളുമായി ലിൻസ

മകരവിളക്കിനോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി പത്തനംതിട്ട ജില്ലാ കളക്ടർ അറിയിച്ചു മകരവിളക്കിന് ശബരിമല ധർമ്മശാസ്ത വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണവുമായുള്ള ഘോഷയാത്ര അൽസമയത്തിനകം പന്തളം വലിയകോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് കൊട്ടാരത്തിൽ പുറപ്പെടും

തീർത്ഥാടകരുടെ സംരക്ഷണത്തിനായ് പൊതുമരാമത്ത് വകുപ്പ് പാഞ്ചാലിമേട്ടിലും പുല്ല് മേട്ടിലും ബാരിക്കേടുകൾ നിർമ്മിക്കും

തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രി കോമ്പൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത്

ഉസ്മാൻ ഖാജ ഷോൺ മാർഷ് പീറ്റർ ഹാന്റ്സ് കോമ്പ് എന്നിവരുടെ ബാറ്റിങ്ങാണ് ഓസിസിന്റെ ഇന്നിങ്സിന് കരുത്ത് നൽകിയത്

അധിക നികുതി ഭാരം ജനത്തിനുമേൽ അടിച്ചേൽപ്പിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ചിലവു ചുരുക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു

തിരുവനന്തപുരം കവടിയാറിലെ വിവേകാനന്ദ പ്രതിമക്ക് മുന്നിൽ ഇന്ന് വൈകുന്നേരം വരെയാണ് ഉപവാസം സംസ്ഥാനത്ത് ഭരണകൂടം തന്നെ വർഗീയത വളർത്തുകയാണെന്ന് ഉപവാസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെ രമേശ് ചെന്നിത്തല ആരോപിച്ചു

എന്നാൽ ബി ജെ

അതിനായി രാഷ്ട്രീയ സഖ്യം നിലനിർത്തും എന്നാൽ ഓരോ രാഷ്ട്രീയ കക്ഷിക്കും സ്വന്തം വ്യക്തിത്വം നിലനിർത്താൻ അവകാശമുണ്ട്